കാലാവസ്ഥാ വൃതിയാനും ്ത്ടയുന്നതിന് സമഗ്ര സമീപനം ആവശ്യമാണെന്ന് പ്രധ്യാന്മന്ത്രി ജലസംരക്ഷണത്തിനായി ഇന്ത്യ അയ്യായിരം ക്കോടി ഡോളർ ചെലവിടും

വെങ്കയ്യനായിഡു ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കരുതെന്നും ഉപരാഷ്ട്രപതി

മത്സരം രാത്രി ഏഴിന് സൂററ്റിൽ

വ്യാപാര നിക്ഷേപ രംഗുങ്ങളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ മേഖല്ലയിൽ സഹകരണത്തിനും ഇറ്റാലിയൻ പ്രസിഡന്റ് ജൂസെപ്പി കോൺ യ്യ്മായി ശ്രീ

ഖത്തർ ഷെയ്ഖ് തമീം ബിൻ ഹമദുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരുനേതാക്കളും ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ മുഴുവൻ സാധ്യതകളും വിശകലനം ചെയ്ത്രു

ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വൃതിയാന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

കാലാവസ്ഥാ വൃതിയാനം മൂലമു ാകുന്ന ദോഷ ഫലങ്ങളെ ചെറുക്കുന്നതിനുള്ള കൂട്ടായ്മയ്ക്ക് ഇന്ത്യ നേതൃത്വം നൽകുകയാണ് കാലാവസ്ഥ വൃതിയാനം മൂലമു ദ്വാകുന്ന ദുരന്തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കൂടുതൽ നടപടികൾ അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രകൃതിയെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക എന്നതാണ് ഇന്ത്യയുടെ നയമെന്നും അത്യാഗ്രഹത്തോടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വൻ വിപത്തുകൾ ക്ഷണിച്ചുവരുത്തുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇന്ത്യ ഒഴിവാക്കിയതായും മറ്റു രാജ്യങ്ങൾക്കും അത് മാതൃക പിന്തുടരാമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

ഇരുവരുംവിവിധ ഉഭയകക്ഷി വിഷയങ്ങളെക്കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യവക്താവ് രവീഷ്കുമാർ മാധ്യമങ്ങളെ അറിയിച്ചു

തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായംലഭിക്കുന്നത്തടയുന്നതിന് വേ നടപടികൾസ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

അടുത്ത മാസം ഇന്ത്യയിൽ നടക്കുന്ന എൻബിഎ അരങ്ങേറ്റ മത്സരങ്ങൾക്ക് വൻ തോതിൽ കാഴ്ചക്കാരെ ആകർഷിക്കാനാവുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്

വെങ്കിയ്യ നായിഡു

കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനായിരുന്നു വൈദ്യരത്നം ശ്രീ

ആയുർവേദത്തിൽ ആധുനിക അറിവുകൾ സൂക്ഷ്മമായി സംയോജിപ്പിച്ച മഹത് വ്യക്തിയാണ് അദ്ദേഹമെന്നും ഉപരാഷ്ട്രപതി എം

ബാലവേല ശൈശവ വിവാഹം കൂട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം തുടങ്ങിയവ ചെറുക്കുന്നതിന് ഗവൺമെന്റിന്റെ ശരിയായ ഇടപെടൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സമാധാന ദിനത്തോടനുബന്ധിച്ച് ജമ്മുവിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അവകാശ സംരക്ഷണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

പഹൽഗാമിൽ ചേർന്ന സുരക്ഷ അവലോകന യോഗത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും ചെറുക്കുന്നതിന് എല്ലാ നടപടികളും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു

റിമാൻഡിൽ കഴിയുന്ന മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി

ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി മലപ്പുറം ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഇന്നലെ ന്യൂഡൽഹിയിൽ ജൻഗണന ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ അമിത്ഷാ

മൊബൈൽ ആപ്പ് പോലുള്ള മാർഗ്ഗങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന വിപ്ലവകരമായ പരിഷ്ക്കാരമാണ് ലക്ഷ്യമിടുന്നത്

ഇന്ത്യയെ ഹർമൻപ്രീത് കൌർ നയിക്കും രാത്രി ഏഴ് മണിയ്ക്കാണ് മത്സരം

കാലവർഷത്തെ തുടർന്നാണ്ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്

ഗാന്ധി സൌരോർജ്ജ പാർക്ക്പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിക്കും

ഓരോ പാനലും ഐക്യരാഷ്ട്ര സംഘടനയിലെ ഓരോ അംഗരാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്ചച്ഛ് ഭാരത് അഭിയാൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബിൽമെലിന്ദ ഗേറ്റ്സ് ഫൌ ഷൻ നൽകുന്ന പുരസ്കാരവും ശ്രീ നരേന്ദ്രമോദി ഏറ്റുവാങ്ങും